പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നല്കി

രാജ്യത്ത് കോവിഡ് മുക്തി നേടുന്നവരുടെ നിരക്ക് വർധിക്കുന്നതായി ആരോഗൃമന്ത്രാലയം

കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളം ഈടാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

നരേന്ദ്ര മോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് അംഗീകാരം നൽകിയത് മൂന്നു ഘട്ടങ്ങളിലായാണ് ഈ തുക വിനിയോഗിക്കുന്നത്

ആരോഗ്യപ്രവർത്തകരെ ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്നവർക്ക് ഏഴ് വർഷം വരെ തടവു ശിക്ഷയും അഞ്ച് ലക്ഷം രൂപ പിഴയും ഈടാക്കും സ്ഥാപനമോ വാഹനമോ തകർത്താൽ രണ്ടിരട്ടി നഷ്ടപരിഹാരം ഈടാക്കും

ഇതിലൂടെ എല്ലാ ഉദ്യോഗസ്ഥരുടെയും സുരക്ഷ ഉറപ്പാക്കാനാകുമെന്ന് ശ്രീ

ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയിന്മേൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി

കോവിഡ് മൂലം മരണം സംഭവിച്ച ആരോഗൃവിദഗ് ധരുടെയും ആരോഗ്യ പ്രവർത്തകരുടെ അന്ത്യകർമ്മങ്ങൾ പോലും തടസ്റ്റപ്പെടുത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു

തിങ്കളാഴ്ചയാണ് മോദി മുഖ്യമന്ത്രിമാരെ വീഡിയോ കോൺഫറൻസിലൂടെ കാണുക

ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് അഭിസംബോധന ഏകീകൃത ഇ ഗ്രാം സ്വരാജ് വെബ്സൈറ്റിന്റേയും മൊബൈൽ ആപ്തിക്കേഷന്റേയും പ്രകാശനവും ശ്രീ

സ്വാമിത ദൌത്യത്തിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും

എസ് ആസ്ഥാനമായുള്ള മോർണിംഗ് കൺസൾട്ട് നടത്തിയ സർവേയെ പരാമർശിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ഇക്കാര്യം ട്വീറ്റ് ചെയ്തത്

കേന്ദ്ര് ടൂരീസം മന്ത്രാലയം അത്തരത്തിൽ ഒരു കത്തും ഇറക്കിയിട്ടില്ലെയ്യും അത്തരം വ്യാജ വാർത്തകൾ ജനങ്ങൾ വിശ്വസിക്കരുതെന്നും പി

ബി ഫാക്ട് ചെക്കിലൂടെ അറിയിച്ചു

കോഴിക്കോട് ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്കാണ് ട്രോഗം ബാധിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രണ്ട് ഷൌസ് സർജന്മാർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്

ഒരു പാലക്കാട് സ്വദേശീകൃഷ്തമാണ് രോഗമുക്തി നേടിയത്

അവശ്യ വസ്തുക്കൾ ഹോം ഡെലിവെറിയായി എത്തിക്കുന്ന രീതി ജില്ല മുഴുവൻ വ്യാപിപ്പിക്കും ആരോഗ്യ ജീവനക്കാരെ പൊലീസ് ് തടയുന്ന സാഹചര്യമുണ്ടാകരുതെന്നും മുഖ്യമന്ത്രി ഓർമിപ്പിച്ചു